പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോഴിക്കോടു നിന്ന് ലഭിച്ച തത്സ മയ സംപ്രേക്ഷണം വഴി സൂര്യഗ്രഹണം വീക്ഷിച്ചു

കുട്ടികളും പ്രായ മായവരും ഉൾപ്പെടെ ആളുകൾ വളരെ ആവേശത്തോടെയാണ് വിവിധയിടങ്ങളിൽ ഗ്രഹണം ദർശിക്കാൻ ഒത്തു കൂടിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോഴിക്കോടു നിന്ന് ലഭിച്ച തത്സമയം സംപ്രേക്ഷണം വഴിയാണ് സൂര്യഗ്രഹണം വീക്ഷിച്ച ത് ഡൽഹിയിൽ മൂടൽമഞ്ഞു കാരണം വലയ സൂര്യഗ്രഹണം കാണാനായില്ലെന്നും കോഴിക്കോടു നിന്നും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും തത്സമയം ലഭിച്ച ദൃശ്യങ്ങളിൽ നിന്നാണ് സൂര്യഗ്രഹണം കണ്ടതെന്നും പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു ഒട്ടേറെ ഇന്ത്യക്കാരെപ്പോലെ തനിക്കും വലയ സൂര്യഗ്രഹണം കാണാൻ വലിയ ആവേശമായിരുന്നുവെന്നും പ്രധാനമന്ത്രി പറ ഞ്ഞു വിദഗ്ധരുമായി ആശയവിനിമയം നടത്തി സൂര്യഗ്ര ഹണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ വിജ്ഞാനം ആർജ്ജിക്കാൻ കഴിഞ്ഞുവെന്നും നരേന്ദ്രമോദി അറിയിച്ചു സൂര്യഗ്രഹണം വീക്ഷിക്കുന്നതിന്റെയും വിദഗ്ധരുമായി സംവ ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പ്രധാനമന്ത്രി ടിറ്ററിൽ പങ്കുവെച്ചു വടക്കൻ കേരളത്തിൽ വലയ ഗ്രഹണം പൂർണ്ണമായിരുന്നു മറ്റിടങ്ങളിൽ ഭാഗിക ഗ്രഹണമാണ് ദൃശ്യമായത്

തൊട്ടു പിന്നാലെ കണ്ണൂർ ജില്ലയിൽ സെക്കന്റുകളുടെ വൃത്യാസ ത്തിൽ ഈ വിസ്മയം ദൃശ്യമായി എന്നാൽ വയനാട് ജില്ലയിൽ അന്തരീക്ഷം മേഘാവൃതമായതിനാൽ ഗ്രഹണം വൃക്തമായി കാണാൻ കഴിഞ്ഞില്ല

ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സൂര്യഗ്രഹണത്തെ കുറിച്ച് പഠിക്കാൻ നിരവധി ശാസ്ത്രജ്ഞരും വാന നിരീക്ഷകരുമാണ് സംസ്ഥാനത്ത് എത്തിയത്

ടെലിസ്കോപ്പ് ഉപയോഗിച്ച് പ്രൊജക്ഷൻ പ്ലെയിൻ മിറർ റിഫ് ളക്ഷൻ സൌരകണ്ണട ഉപയോഗിച്ച് ഗ്രഹണം കാണൽ സ്റ്റെല്ലേറിയം ഉപയോഗിച്ച് ക്ലാസുകൾ തുടങ്ങിയവും സംഘടിപ്പിച്ചു വിവിധ സംഘടനകളും സ്ഥാപനങ്ങളും ചേർന്ന സൌരോത്സവം സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ നൂറിലധികം സ്ഥലങ്ങളിലാണ് വലയ സൂര്യഗ്രഹണത്തെ വരേവറ്റത് കോഴിക്കോട് മാനാഞ്ചിറ മൈതാനിയിൽ മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ സൌരോത്സവം ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് മേഖലാ ശാസ്ത്രകേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ്ഗ്രഹണത്തെ സംബന്ധിക്കുന്ന എക്സ്ബിഷൻ ബിഗ് സ്ക്രീൻ പ്രോജക്ഷൻ ഗ്രഹണ നീരീക്ഷണ ഉപകരണങ്ങൾ പിൻഹോൾ ക്യാമറകൾ കണ്ണടകൾ എന്നിവ നിരീക്ഷണ സ്ഥലത്ത് ലഭൃമാക്കിയിരുന്നു

മുൻ ഇന്ത്യൻ ഹോക്കി ടീം താരം സീമ മീർ ഉൾപ്പെടെ വിദേശികളോടൊപ്പം മാനന്തവാടി എം

ആർ കേളു നഗരസഭ ചെയർമാൻ വി ആർ പ്രവീജ് തുടങ്ങിയവരും സൌരോത്സവത്തിൽ പങ്കാളികളായി

കൂടാതെ മാജിക് ഷോയും നാടൻ പാട്ടുകളുമായി കാണികൾക്ക് ആവേശം പകരാൻ കലാകാരൻമാരും എത്തിയിരുന്നു

മറ്റ് ജില്ലകളിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി വാന നിരീക്ഷകരാണ് ജില്ല യിൽ എത്തിയത് വിവിധ ശാസത്ര സംഘടനകളും ഗ്രന്ഥശാലകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമാണ് ക്യാമ്പുകൾ സംഘടിപ്പിച്ചത് കണ്ണൂർ കലക്ട്രേറ്റ് മൈതാനിയിൽ സൂര്യഗ്രഹണം നിരീക്ഷിക്കുന്നതിനായി പ്രത്യേക സൌകര്യം ഒരുക്കിയിരുന്നു

ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ശാസ്ത്ര പ്രവർത്തകരും ഗ്രഹണം നിരീക്ഷിക്കാൻ എത്തിയിരുന്നു

വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ സൂര്യഗ്രഹണം കാണാൻ എത്തിച്ചേർന്നു സ്വാമി വിവേകാനന്ദന്റെ കാഴ്ചപ്പാട് രാജ്യത്തിനും യുവാ ക്കൾക്കും പ്രചോദനം പകരുന്നതാണെന്ന് രാഷ്ട്രപതി രാം നാഥ് കോവിന്ദ് പറഞ്ഞു കന്യാകുമാരിയിൽ വിവേകാനന്ദ റോക്ക് മെമ്മോറിയലിന്റെ സുവർണ്ണ ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാ ടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി സ്വാമി വിവേകാനന്ദന്റെ ജീവിതത്തിൽ കന്യാകുമാരിക്ക് പ്രത്യേക സ്ഥാനമുണ്ടെന്നും രാഷ്ട്രപതി പറഞ്ഞു ചിക്കാഗോയിൽ ലോക മതസമ്മേളനത്തെ അഭിസംബോധന ചെയ്യാൻ പോകുന്നതിന് മുമ്പ് സ്വാമി വിവേ കാനന്ദൻ മൂന്ന് ദിവസം കന്യാകുമാരിയിൽ ധ്യാനത്തിൽ കഴി ഞ്ഞിരുന്നുവെന്നും രാംനാഥ് കോവിന്ദ് പറഞ്ഞു ഇന്ത്യയുടെ ഇതിഹാസ കാവ്യങ്ങളായ രാമായണത്തെയും മഹാഭാരതത്തെയും ആസ്പദമാക്കി വിവേകാനന്ദ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച ശബ്ദ ദൃശ്യ പ്രദർശന കേന്ദ്രവും രാഷ്ട്രപതി സന്ദർശിച്ചു എൻ ഡി എ ഗവ

നടപ്പാക്കിയ ജനസംഖ്യാ രജിസ്റ്ററിൽ നിന്ന് തികച്ചും വൃത്യസ്തമാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ചിദംബരം പറഞ്ഞു ദേശീയ പൌരത്വ രജിസ്റ്ററുമായി ജനസംഖ്യാ രജിസ്റ്റർ ബന്ധിപ്പിക്കുമോ എന്ന് കേന്ദ്രം വ്യക്തമാ ക്കണമെന്ന് അദ്ദേഹം ട്വിറ്ററിൽ ആവശ്യപ്പെട്ടു

സിനിമാതാര ങ്ങൾക്കെതിരെ സന്ദീപ് വാര്യർ നടത്തിയ പ്രതികരണം പാർട്ടി നിലപാട് അല്ലെന്നും വൃക്തിപരമാണെന്നും അദ്ദേഹം അറിയിച്ചു

ശബരിമലയിൽ മണ്ഡലപൂജയ്ക്കായി അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുന്ന തങ്കയങ്കിയുമായി പുറപ്പെട്ട രഥഘോഷയാത്ര ഇന്ന് വൈകിട്ട് സന്നിധാനത്തെത്തും

വൈകീട്ട് തങ്കയങ്കി ചാർത്തിയതിന് ശേഷം മഹാദീപാരാധന നടക്കും തുടർന്ന് അയ്യപ്പൻമാർക്ക് ദർശനം നല്കും

സൂര്യഗ്രഹണം കണക്കിലെടുത്ത് ഇന്ന് ദർശന സമയത്തിൽ മാറ്റം വരുത്തിയിരുന്നു രാവിലെ ഏഴര മുതൽ പതിനൊന്നര വരെ നടയടച്ചിട്ടു ഇന്ത്യൻ സൂപ്പർലീഗ് ഫുട്ബോളിൽ ഇന്ന് ചെന്നൈയിൻ എഫ് സി ഗോവ എഫ് സിയെ നേരിടും

ഇന്നലെ കൊൽക്കത്തയിലെ മത്സരത്തിൽ ബംഗളൂരു എഫ് സിയെ ഒരു ഗോളിന് തോൽപ്പിച്ച് കൊൽക്കത്ത എ

ടി

പൊന്നാനിയിൽ നിന്നും അഞ്ചു ദിവസം മുമ്പ് മത്സ്യ ബന്ധ നത്തിനു പോയി കാണാതായ മൂന്ന് മത്സ്യ തൊഴിലാളികളെയും കടലിൽ കണ്ടെത്തി ശനിയാഴ്ച മത്സ്യബന്ധനത്തിനു പോയ സുൽഫിക്കറിനെയും മുജീബിനെയും സുഹൃത്തിനെയുമാണ് കട ലിൽ കണ്ടെത്തിയത്

മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡ് ഉപരോധിച്ച ചരിത്രകാ രൻ ഡോ

ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കരുതെന്ന് കോടതി പറഞ്ഞു വിധി മാനിക്കുന്നുവെന്നും എന്നാൽ പ്രതിഷ്യേധത്തിൽ നിന്ന് പിൻമാറി ല്ലെന്ന് എം ജി എസ് പറഞ്ഞു കൊച്ചി പാലാരിവട്ടത്ത് ലഹരിഗുളികകളുമായി രണ്ടു പേർ അറസ്റ്റിലായി എറണകുളം പുതുവൈപ്പ് സ്വദേശി സച്ചിൻ സേവ്യർ ആലപ്പുഴ വണ്ടാനം സ്വദേശി ഫഹദ് റഹ്മാൻ എന്നിവരാണ് അറസ്റ്റിലായത് കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമാണ് ഇവർ ലഹരി ഗുളികകൾ സംസ്ഥാന ത്ത് എത്തിച്ചിരുന്നത് കൊച്ചി നഗരത്തിലെ യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും വിൽപ്പന നടത്തുന്നതിനിടെയാണ് പൊലീസിന്റെ പിടിയിലായത് സംസ്ഥാ നത്ത് ഇന്ധ ന വില വർദ്ധിച്ചു

പെട്രോ ളിന് ആറു പൈസയും വർദ്ധിച്ചു